കനത്ത സുരക്ഷയിലാണ് രാവിലെ ഒൻപതിന് ആരംഭിച്ച വോട്ടെടുപ്പ് നടക്കുന്നത്

നക്സൽ ബാധിത മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ വോട്ടർമാരുടെ നീണ്ട നിരയാണുള്ളത് നക്സൽ ബാധിത മേഖലകളിൽ രാവിലെ ഏഴ് മുതൽ ഉച്ച തിരിഞ്ഞ് മൂന്ന് വരെയാണ് വോട്ടെടുപ്പ്

ചീഫ് ജസ്റ്റിസ് എസ്

ബോബ്ഡേയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് വിഷയവുമായി ബന്ധപ്പെട്ട് തീർപ്പാക്കാനുള്ള മറ്റ് ഹർജികളും പരിഗണിക്കും

പ്രത്യിഷേധവുമായി ബന്ധപ്പെട്ട് പൊതുമുതൽ നശിപ്പിച്ച സംഭവങ്ങൾ പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് എസ്

ബോബ്ഡെയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ഇത്തരം പ്രവണതകൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു വിദ്യാർത്ഥികൾക്ക് എതിരെയുള്ള ആക്രമണ ആരോപണങ്ങളിൽ സ്വമേധയാ കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടം അഭിഭാഷകരാണ് സംഭവം പരമോന്നത കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്

വ്യാവസായിക കർഷക സംഘടനാ പ്രതിനിധികൾ ധനകാര്യ വിദഗ്ദ്ധർ എന്നിവരിൽ നിന്നും നിർദ്ദേശങ്ങൾ തേടും

സമ്പദ്ഘടനയിലെ നവാഗതരായ ഫിൻടെക് ഡിജിറ്റൽ മേഖലയിൽ ഉള്ളവരുമായും കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുണ്ട് മൂലധന വിപണിയിലെ പ്രതിനിധികളുമായുള്ള ചർച്ചകളും ഇന്ന് നടക്കും

ഡൽഹി നഗരത്തിൽ പൊലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്

വിശദാംശങ്ങളുമായി ശ്രീലത വോയിസ് നികുതിദായകർക്ക് ഒട്ടേറെ സേവനങ്ങളാണ് ഇതുവഴി ലഭ്യമാകുകയെന്ന് ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കി

ഇ ഫയലിംഗ് പോർട്ടലിലൂടെയോ എസ് എം എസ് സൌകര്യം ഉപയോഗിച്ചോ ഉപഭോക്താക്കൾക്ക് കാർഡുകൾ ബന്ധിപ്പിക്കാവുന്നതാണ്

ആഴ്ച തോറും പരാതികൾ ശേഖരിക്കാൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തണമെന്ന് ബന്ധപ്പെട്ട ഡെപ്യൂട്ടി കമ്മീഷണർമാർക്ക് ചീഫ് സെക്രട്ടറി ബി

ലഫ്റ്റനന്റ് ഗവർണറുടെ അധ്യക്ഷതയിൽ ഈ മാസം ചേർന്ന ഭരണസമിതി യോഗത്തിന്റേതാണ് പരാത്രിപ്പെട്ടി സ്ഥാപിക്കുന്നതു സംബന്ധിച്ചു തീരുമാനം

രാജ്യരക്ഷാ സഹമന്ത്രി ശ്രീപദ് യെസോ നായിക് കരസേനാ മേധാവി ബിപിൻ റാവത്ത് വ്യോമസേനാ മേധാവി ആർ

ബഡൌരിയ നാവിക മേധാവി അഡ്മിറൽ കരംബീർ സിംഗ് എന്നിവർ ദേശീയ യുദ്ധ സ്മാരകത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചു

ന്യൂസ്ഡെസ്ക് ആകാശവാണി

കേന്ദ്ര മന്ത്രി സ്മൃതി ഇറാനിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ

പ്രതിനിധി സംഘം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി

വടക്ക് കിഴക്കൻ കാലവർഷം ശക്തിയാർജ്ജിച്ചതോടെ വെള്ളച്ചാട്ടം കൂടുതൽ ഹൃദയഹാരിയായതാണ് സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കാൻ കാരണം മഴ കനത്തതിനാൽ തേനിയിലെ കമ്പം താഴ്വരയിലെ അരുവികളിൽ നീരൊഴുക്ക് കൂടി

ആദ്യഘട്ട വ്യാപാരക്കരാറിൽ ബൌദ്ധിക സ്വത്ത് സംരക്ഷണം സാങ്കേതികവിദ്യ നാണയം സാമ്പത്തിക സേവനങ്ങൾ എന്നീ ഘടകങ്ങൾ ഉൾപ്പെടുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു

സഹായത്തോടെയും അല്ലാതെയും തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിട്ടയിൽ ്നിന്നും ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുന്നു തകർന്നടിഞ്ഞ വിപണന കേന്ദ്രത്തിനടിയിൽ നിന്ന് രണ്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തു വീട് ഇടിഞ്ഞ് വീണ് ഒരു കുട്ടി മരിച്ചു മിൻഡാനോ ദ്വീപ് നഗരത്തിൽ ഇന്നലെ ഉണ്ടായ ഭൂചലനത്തിൽ നിരവധി സ്കൂളുകളും കെട്ടിടങ്ങളും തകർന്നു നിരവധി പേർക്ക് പരിക്കേറ്റു ഒക്ടോബറിൽ ഉണ്ടായ ഭൂചലനങ്ങളിൽ നിന്ന് സാധാരണ നിലയിലേയ്ക്ക് എത്താനുള്ള ശ്രമത്തിലായിരുന്നു നഗരം

മരിച്ചവരിൽ എട്ട് പേർ ആസ്ട്രേലിയക്കാരും രണ്ട് പേർ അമേരിക്കക്കാരുമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്

കേന്ദ്ര ഭവന നഗരകാര്യവകുപ്പ് സെക്രട്ടറിയിട്ട് മറ്റ് ഉന്നതരും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്

പലിശ നിരക്കുകൾ കുറച്ചത് ശരിയായ സമയത്താണെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു

കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടയിൽ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല

ഗുവാഹത്തിയിലും ദിബ്രുഗഡ്ഡിലും സ്ഥിതിഗതികൾ ശാന്തമായതിനെ തുടർന്ന് കർഫ്യൂവിൽ ഇളവ് നൽകി